കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മുംബൈയിൽ മലയാളി മരിച്ചു

ഡൽഹി നിസാമുദ്ദീൻ മതസ്മ്മേളനത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രസർക്കാർ നിർദ്ദേശം

ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്രസർക്കാർ നടപടി തുടങ്ങി രാജ്യത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര രാസവസ്തു മന്ത്രാലയം

സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൌജനൃ റേഷൻ വിതരണം ആരംഭിച്ചു

സംസ്ഥാനത്ത് അടുത്ത രണ്ടു ദിവസം കൂടി ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്

ഇതിൽ ഒൻപത് പേർ വിദേശത്ത് നിന്നെത്തിയവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ വാർത്താസ്മ്മേളനം തുടരുകയാണ്

സ്പെയിനിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ

ഇവർക്കെതിരെ വിസ ചട്ടലംഘനത്തിന് നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട്

ഇതേത്തുടർന്നു ദക്ഷിണ ഡൽഹിയിലെ മതസംഘടനയുടെ ആസ്ഥാനത്ത് നിന്ന് ഒഴിപ്പിച്ച രണ്ടായിരത്തിലേറെ പേരെ നിരീക്ഷണത്തിലാക്കിയെന്നു സർക്കാർ അറിയിച്ചു

കേരളത്തിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ സംസ്ഥാന സർക്കാറും ശേഖരിച്ചു വരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ഇവരിൽ രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലെന്ന് തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്

കൊറോണ വൈറസ് വ്യാപ്പ്സ് പ്രതിരോധിക്കുന്നതിന് രാജ്യത്ത് മരുന്നുകൾക്ക് ക്ഷ്ടാമമില്ലെന്ന് കേന്ദ്ര രാസവസ്തു മന്ത്രാലയം അറിയിച്ചു

നാളെ രണ്ട് മൂന്ന് സംഖ്യകളിൽ റേഷൻ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും മറ്റന്നാൾ നാല് അഞ്ച് സംഖ്യകളിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും റേഷൻ വാങ്ങാം നാലാം തീയതി ആറ് ഏഴ് സംഖ്യകളിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും അഞ്ചാം തീയതി എട്ട് ഒൻപത് സംഖ്യകളിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും റേഷൻ വിതരണം ചെയ്യുമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ പി വേണുഗോപാൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ഡി പി

വരികയായിരുന്ന ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ലെന്ന് ലേബർ ഓഫീസറോട് പരാതിപ്പെട്ടതിനാണ് ഇയാൾക്ക് മർദ്ദനമേറ്റത്

നിരോധ്യൻ ലംഘിച്ചു യാത്ര ചെയ്തതിന് സംസ്ഥാനത്തൊട്ടാകെ പ്രാഹ്ഇന്നും നിരവധി പേർക്കെതിരെ കേസെടുത്തു

വിഷയത്തിലെ അശാസ്ത്രീയത തുറന്നുകാണിക്കുന്ന പൊതുജന ബ്യൂധവൽക്കരണ പരിപാടി തുടങ്ങുമെന്നും കെ